അമേരിക്ക നിർത്തലാക്കിയ സാഹചരൃം നേരിടാൻ ഇന്തൃ പര്യാപ്തമെന്ന് വിദേശകാരൃമന്ത്രാലയം

ഒഡീഷയിലെ പുരി ഗോപാൽപൂർ എന്നിവിടങ്ങളിൽ ശക്തമായ പെയ്യുന്നത്

ആഭ്യന്തര സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ദേശീയ ക്രൈസിസ് മാനേജ്മെന്റ് സമിതി സ്ഥിതി വിലയിരുത്തുന്നുണ്ട്

ഭൂവനേശ്വറിൽനിന്നുള്ള എല്ലാ വിമാനങ്ങളും റദ്ദാക്കി

പത്ത് കിലോമീറ്റർ പരിധിക്കുള്ളിൽ അനുഭവപ്പെട്ട ഭൂചലനത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ലെന്നാണ് വിവരം

ഒരു സൈനികനും പരിക്കേറ്റു

മേഖലയിൽ ഭീകരരുടെ സാന്നിധൃമുണ്ടെന്ന വിവരത്തെ തുടർന്ന് നടത്തിയ തെരച്ചിലിനിടെയാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത്

ഏഴ് ഘട്ടമായി നടക്കുന്ന തെരഞ്ഞെടുപ്പിലെ മൂന്ന് ഘട്ടങ്ങൾ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്

ജെ പി അധ്യക്ഷൻ അമിത്ഷാ ജാർഖണ്ഡിലെ ജുംറി തെലയ ഖുണ്ഡി ധൂർവ എന്നിവിടങ്ങളിൽ പാർട്ടി യോഗങ്ങളിൽ പങ്കെടുക്കും കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധി ഇന്ന് യു പി യിലെ മഹാരാജ്ഗഞ്ചിലും ശിവ്ഗാർഗിലും പൊതുയോഗങ്ങളെ അഭിസംബോധന ചെയ്യും ബിഎസ്പി അധ്യക്ഷ മായാവതി യു

യിലെ തന്നെ സിദ്ദാർത്ഥനഗർ സുൽത്താൻപൂർ എന്നിവിടങ്ങളിൽ ഇന്ന് നടക്കുന്ന തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ സംസാരിക്കും

അവസാനഘട്ടത്തിൽ പോളിംഗ്പ് ബൂത്തിലെത്തുന്ന ഹിമാചൽപ്രദേശിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം ഇന്നലെ അവസാനിച്ചു

മൂഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ ശ്രീറാം തരണികാന്തിയുടെ നിഷ്പക്ഷതയിൽ സംശയമുണ്ടെന്നാണ് ബി ജെ പിയുടെ ആരോപണം

ചിത്രത്തിന്റെ നിർമ്മാതാവായ സന്ദീപ് സിംഗ് അറിയിച്ചതാണ് ഇക്കാരൃം തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ചിത്രത്തിന്റെ റിലീസിംഗ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തടഞ്ഞിരുദ്ധു ഇതിന് എതിരെ നിർമാതാക്കൾ സുപ്രീംകോടതിയെ സ്മീപിച്ചെങ്കിലും കോടതി കമ്മീഷൻ നിലപാട് അംഗീകരിക്കുക്ടിയായിരുന്നു

ജെ പിക്ക് കഴിയില്ലെന്ന് പാർട്ടി അധ്യക്ഷനും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു

എത്ര പണം നൽകിയാണ് എം എൽ എ മാരെ ബി ജെ പി വിലയ്ക്കെടുക്കുന്നതെന്നും എം എൽ എ മാർ എത്ര രൂപയാണ് വിലയായി ആവശ്യപ്പെട്ടതെന്നും ബി ജെ പി വൃക്തമാക്കണമെന്ന് ശ്രീ കെജ്രിവാൾ ആവശ്യപ്പെട്ടു

ഐ എം നേതാവുമായ വി വിശ്വനാഥമേനോൻ കൊച്ചിയിൽ അന്തരിച്ചു

വിദ്യാർത്ഥി കാലം മുതൽ തന്നെ നേതൃത്വപദവി അല്ലങ്കരിച്ചിരുന്നു സംസ്കാരം വൈകിട്ട് കൊച്ചി രവിപുരം ശ്മശ്ശാനത്ത് നടക്കും

രാജ്യത്ത് എണ്ണു വിതരണം ചെയ്യുന്നതിനായി മറ്റ് പ്രധാന എണ്ണ ഉത്പാദക രാജ്യങ്ങളുമായി പദ്ധതി തയ്യാറാക്കിയതായും വിദേശകാര്യ വക്താവ് രവീഷ് കുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു

അസറിന്റെ പാക്കീസ്സ്മാനിലെ വസ്തുവകകൾ മരവിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ഇന്നളലു പ്പാകിസ്ഥാൻ വിദേശമന്ത്രാലയം പുറപ്പെടുവിച്ച ഉത്തരവിൽ അസറിനെതിരായ് ഐക്യരാഷ്ട്ര പ്രമേയം പാക് ഗവൺമെന്റ് എല്ലാ അർത്ഥത്തിലും പാലിക്കുമെന്ന് ഉറപ്പ് നൽകി

കഴിഞ്ഞ ദിവസമുണ്ടായ ഏറ്റുമുട്ടലിൽ വീരമൃത്യുവരിച്ച പൊലീസുകാർക്ക് ആദരാഞ്ജലി അർപ്പിച്ചശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

മാധ്യമ സ്വാതന്ത്രിത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ട ആഘോഷ്വേളയാണിത് മാന്യമ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള് ആക്രമണങ്ങളെ ചെറുക്കുന്നതിന് ആഹാനം ചെയ്യുകയുട്ട് കെര്ദ്യോഗിക കൃത്യനിർവ്വഹണത്തിനിടയിൽ ജീവൻ ബലിയർപ്പിക്കേണ്ടിവന്ന മാധ്യമ പ്രവർത്തകർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുകയും ചെയ്യുന്ന ദിനം കൂടിയാണ് ഇത്

ഇന്ത്യ ഫ്രാൻസ് ബഹിരാകാശ സഹകരണ മേഖലയ്ക്ക് നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം ഇന്തൃയിലെ ഫ്രഞ്ച് അംബാസിഡർ അദ്ദേഹത്തിന് ഇന്നലെ അവാർഡ് സമ്മാനിച്ചു

രാത്രി എട്ടിന് മൊഹാലിയിലാണ് ഇന്നലെ മുംബൈയിൽ നടന്ന മത്സരത്തിൽ മത്സരം സൺറൈസേഴ്സ് ഹൈദരാബാദിനെ പരാജയപ്പെടുത്തി മുംബൈ ഇന്ത്യൻസ് പ്തേ ഓഫിൽ കടന്നു

ഇന്നലെ നടന്ന മത്സരത്തിൽ ഇന്തോനേഷ്യൻ താരം ടോമി സുഗിയാർട്ടോയെ പ്രണോയ് പരാജയപ്പെടുത്തിയിരുന്നു

ബ്രസീലിൽ നടന്ന നീന്തൽ മത്സരത്തിൽ നേട്ടം കൈവരിച്ചാണ് അദ്ദേഹം ലോക ചാമ്പ്യൻഷിപ്പിലേക്ക് യോഗൃത നേടിയത് ജന്മനാ നട്ടെല്ലിനുണ്ടായ അസുഖത്തെ തുടർന്നാണ് ശ്രീ നിരഞ്ജന് ചലനശേഷിക്ക് കുറവ് സംഭവിച്ചത് ശാരീരിക വെല്ലുവിളി നേരിടുന്നവർക്കായി സംഘടിപ്പിക്കുന്ന ലോക നീന്തൽ മത്സരം ഈ വർഷം ലണ്ടനിലാണ് നടക്കുക